പാക് തീരുമാനത്തെ വ്യോമ സേനയും ഐക്യരാഷ്ട്ര സംഘടനയും സ്വാഗതം ചെയ്തു ജമ്മു കശ്മീരിൽ ജമാഅത്തെ ഇസ്ലാമിയെ അഞ്ച് വർഷത്തേക്ക് നിരോധിച്ചു ബാങ്ക് അക്കൌണ്ടിനും മൊബൈൽ കണക്ഷനും തിരിച്ചറിയൽ രേഖയായി ആധാർ സ്വമേധയാ ഉപയോഗിക്കാൻ കേന്ദ്രം ഓർഡി നൻസ് കൊണ്ടുവരും

കൊല്ലത്ത് ആളുമാറി മർദ്ദനമേറ്റ ഐടിഐ വിദ്യാർത്ഥി മരിച്ചു

ൾ ൽ ൾ പാകിസ്ഥാൻ പിടിയിലായ ഇന്ത്യയുടെ ധീര വൈമാനികൻ വിങ്ങ് കമാന്റർ അഭിനന്ദൻ വർദ്ധമാനെ ഇന്ന് ഇന്ത്യക്ക് കൈമാറും രാജ്യാ ന്തര റെഡ് ക്രോസ് വഴിയായിരിക്കും അഭിനന്ദിന്റെ മോചനമെന്നാണ് റിപ്പോർട്ട് വാഗാ അതിർത്തി വഴിയായിരിക്കും അഭിനന്ദിനെ ഇന്തൃക്ക് കൈമാറുന്നത് അദ്ദേഹത്തെ സ്വീകരിക്കാൻ രാജ്യരക്ഷാ മന്ത്രി നിർമ്മലാ സീതാരാമനും സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും വാഗാ അതിർത്തിയിൽ എത്തും

അഭി നന്ദിന്റെ പിതാവും കുടുംബാഗങ്ങളും വാഗാ അതിർത്തിയിൽ എത്തി യിട്ടുണ്ട്

ഇന്ത്യയുടെ നയതന്ത്ര ശ്രമങ്ങളുടെ ഫ്ലമായാണ് പാകിസ്ഥാൻ പിടിയിലായി മൂന്ന് ദിവസത്തിനകം തന്നെ അഭിനന്ദിനെ മോചിപ്പി ക്കാനായത് ഇന്ത്യ നിലപാട്ട് കർശനമാക്കി ഉപാധിരഹിതമായി വൈമാ നികനെ തിരികെ നൽകണമെന്ന് ആവശൃപ്പെട്ടിരുന്നു ഇതോടൊപ്പം അന്താരാഷ്ട്ര സമ്മർദ്ദവും ശക്തമായതിനെ തുടർന്നാണ് അഭിനന്ദിനെ തിരികെ നൽകാൻ പാകിസ്ഥാൻ നിർബന്ധിതമായത് സമാധാന ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇന്ത്യൻ വൈമാനികനെ കൈമാറുന്നതെന്ന് പാക് പ്രധാനമന്ത്രി ഇമ്രാൻ ഖാൻ ഇന്നലെ പാർല മെന്റിനെ അറിയിക്കുകയായിരുന്നു അഭിനന്ദനെ കൈമാറാനെടുത്ത തീരുമാനത്തെ വ്യോമസേനാ ഉപ മേധാവി എയർ വൈസ് മാർഷൽ ആർ

കപൂർ ന്യൂഡൽഹി യിൽ സ്വാഗതം ചെയ്തു ജനീവ ഉടമ്പടി പ്രകാരം പ്രവർത്തിക്കാൻ പാകിസ്ഥാൻ തയാറായതിന്റെ തെളിവാണിതെന്ന് അദ്ദേഹം വിലയി രുത്തി ഇന്ത്യൻ വൈമാനികനെ മോചിപ്പിക്കാനെടുത്ത തീരുമാനം തികച്ചും അഭിനന്ദനീയമാണെന്ന് ഐക്യരാഷ്ട്ര സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസിന്റെ വക്താവ് അറിയിച്ചു മേഖലയിലെ സംഘർഷം ഇല്ലാതെയാക്കാൻ പാക് നടപടി സഹായിക്കുമെന്ന് യുഎൻ വിലയിരുത്തി

ഭീകര സംഘടനക ളുമായി പുലർത്തുന്ന അടുത്ത ബന്ധവും മൌലികവാദ വിഘടനപര മായ പ്രവർത്തനവും മുൻ നിർത്തിയാണ് ഭീകരവിരുദ്ധ നിയമപ്ര കാരം വിലക്ക് ഏർപ്പെടുത്തിയത് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന രാജ്യസുരക്ഷ സംബന്ധിച്ച ഉന്നതതല യോഗത്തിലാണ് തീരു മാനം മൂന്ന് സേനാ വിഭാഗങ്ങളുടെ മേധാവികളും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും കേന്ദ്രമന്ത്രിമാരായ അരുൺ ജെയ്റ്റലി സുഷമ സ്വരാജ് രാജ്നാഥ് സിങ്ങ് നിർമ്മല സീതാരാമൻ തുടങ്ങിയവരും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു ബാങ്ക് അക്കൌണ്ടിനും മൊബൈൽ ഫോൺ കണക്ഷനും തിരി ച്ചറിയൽ രേഖയായി ആധാർ സ്വമേധയാ ഉപയോഗിക്കാൻ കേന്ദ്രം ഓർഡിനൻസ് കൊണ്ടുവരും

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം എന്നാൽ പ്രധാൻമന്ത്രി കിസാൻ പദ്ധതി അനുസരിച്ച് രണ്ടാം ഗഡു ധനസഹായത്തിന് കർഷകർക്ക് ആധാർ നിർബന്ധമാക്കില്ല എയർ ഇന്ത്യുടെ ഓഹരി വിൽപ്പനക്കും സംയുക്ത സംരംഭ ങ്ങൾക്കും അനുമതി നൽകാനും മന്ത്രിസഭാ യോഗം തത്തിൽ തീരു മധ്യപ്രദേശിലെ ഗ്വോളിയോറിൽ ഭിന്നശേഷിക്കാർക്ക് മാനിച്ചു സ്പോർട്സ് സെൻർ ആരംഭിക്കുന്നതിനും മന്ത്രിസഭ അനുമതി നൽകി

വൈദ്യുതി വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന് പതിനായിരം കോടി രൂപയുടെ പദ്ധതിക്കും മന്ത്രിസഭ അംഗീകാരം നൽകി സബ്സിഡി പാചകവാതക സിലിണ്ടറിന്റെ വില രണ്ട് രൂപ എട്ട് പൈസ വർദ്ധിപ്പിച്ചു

മൂന്ന് മാസത്തെ തുടർച്ചയായ വിലക്കുറ വിന് ശേഷമാണ് സിലിണ്ടർ വില വർദ്ധിക്കുന്നത് അതിർത്തിയിലെ സംഘർഷത്തിൽ രാജ്യം ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണിതെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റിനെ വിമർശിക്കുന്ന വരെ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കുകയാണെന്നും കോടിയേരി പെരുമ്പാവൂരും അങ്കമാലിയിലും കേരള സംരക്ഷണ യാത്രയ്ക്കു നൽകിയ സ്വീകരണത്തിൽ കുറ്റപ്പെടുത്തി

ഇടുക്കി കോടാലിപ്പാറയിൽ പട്ടിക വിഭാഗ ആൺകു ട്ടികളുടെ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ നിർമ്മാണം ഉദ്ഘാടനം ചെയ്യു കയായിരുന്നു മന്ത്രി

ഗോത്രഭാഷ അറിയാവുന്നവരെ അധ്യാപകരായി നിയമിക്കുന്ന മെന്റ് ടീച്ചേഴ്സ് പദ്ധതി സംസ്ഥാനത്ത് മുഴുവൻ നടപ്പാക്കുമെന്ന് മന്ത്രി പറഞ്ഞു

പരമ്പരാഗത ധാന്യ കൃഷിക്കായി മില്ലറ്റ് വില്ലേജ് പദ്ധതിയും നടപ്പാക്കുമെന്ന് എ

ബാലൻ അറിയിച്ചു പീരുമേട് മോഡൽ റെസി ഡൻഷ്യൽ സ്കൂളിൽ ഹയർ സെക്കൻറി ബ്ലോക്കിന്റേയും ഓഫീസ് സമുച്ചയത്തിന്റേയും ഗ്രൌണ്ടിന്റേയും നിർമ്മാണവും മന്ത്രി ഉദ്ഘാ ടനം ചെയ്തു ഇലക്ട്രിക് ബസുകൾ സംസ്ഥാനത്ത് നിർമ്മിക്കുന്നതടക്കം വ്യവ സായ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് ഗവൺമെന്റ് ഒരുങ്ങുകയാണെന്ന് മന്ത്രി എ

മൊയ്തീൻ അറിയിച്ചു മുളന്തുരുത്തിയിൽ നിർമ്മിച്ച ബസ് ടെർമിനൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്കിന്റെ ഇ

കുമാരൻ ടി സി ഗോപാലൻ മാസ്റ്റർ സ്മാരക സഹകാരി അവാർഡുകൾ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇന്ന് കോഴിക്കോട്ട് വിതരണം ചെയ്യും സംസ്ഥാനത്തെ മികച്ച സഹകാരിക്കു നൽകുന്ന ഇ

കുമാരൻ സ്മാരക പുരസ്കാരത്തിന് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരിയാണ് അർഹ നായത്

ഗോപാലൻ മാസ്റ്റർ ജില്ലാതല സഹകാരി അവാർഡ് എം

നാരായണൻ നമ്പ്യാർക്കാണ് ഉച്ചക്ക് കെഡിസി ബാങ്കിലെ ഇ

കുമാരൻ സ്മാരക ഓഡിറ്റോറിയത്തിലാണ് അവാർഡ്ദാനം

ഇന്നലെ കോഴിക്കോട്ട് ഐസ്വാളിനോട് ഒന്നിനെതിരെ മൂന്ന് ഗോളിനാണ് ഗോകുലം പരാജയപ്പെട്ടത്

കേര കൃഷിയിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തെ ഒന്നാം സ്ഥാന ത്തെത്തിക്കാ നാണ് ഗവൺമെൻ് ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം അറിയിച്ചു കുയിലൂർ പെരുമണ്ണ് പെടയങ്ങോട് കൂടിവെള്ള പദ്ധതിയുടെ പ്രവർത്തി ഉദ്ഘാ ടനം ചെയ്യുകയായിരുന്നു മന്ത്രി

തിലോത്തമൻ കൊല്ലത്ത് അറി യിച്ചു മടത്തറയിൽ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

കൂടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന മഹിളാ മിത്ര വായ്പാ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം പാലക്കാട്ട് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ ഇടുക്കി ജില്ലയിലെ പ്രത്യേക കന്നുകുട്ടി പരിപാലന പദ്ധതി മന്ത്രി എം

മണി നെടുങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു കന്നുകാലി വളർത്തലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന മലയോര ജനതക്ക് ആശ്വാസം നൽകാനാണ് പദ്ധതിയെന്ന് മന്ത്രി പറഞ്ഞു എൽഡിഎഫ് ഗവൺമെന്റ് കാലാവധി പൂർത്തിയാക്കും മുൻപ് ഭവന രഹിതർക്കും ഭൂമി ഇല്ലാത്തവർക്കും വീട് എന്ന സ്വപ്നം യാഥാർത്ഥൃമാക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു പത്തനംതിട്ട സീതത്തോട് പഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് മന്ദിരം

നവോത്ഥാന കൃതികൾ ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്ന് മന്ത്രി എം

പത്തനംതിട്ട ഇലവുംതിട്ടയിൽ മൂലൂർ സ്മാരക വാർഷികവും സരസകവി മൂലൂർ എസ്

അരിനല്ലൂർ സ്വദേശി രഞ്ജിത്താണ് മരിച്ചത്

അരിനല്ലൂർ സ്വദേശിയും കൊല്ലം ജില്ലാ ജയിൽ വാർഡനുമാണ് വിനീത് വിനീതിന്റെ ബന്ധുവായ പെൺകുട്ടിയോട് രഞ്ജിത്ത് മോശമായി പെരുമാറിയെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം കാസർകോഡ് കല്ല്യാട്ട് കൊല ചെയ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ സ്മൃതി കുടീരങ്ങളിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മറ്റിയുടെ വീരസ്മൃതി യാത്രയ്ക്ക് ഇന്ന് തുടക്കമാകും സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് നയിക്കുന്ന യാത്ര രാവിലെ പെരിയ കല്ല്യോട്ട് യൂത്ത് കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് കേശവ് ചന്ദ് യാദവ് ഉദ്ഘാടനം ചെയ്യും ഈ മാസം അഞ്ചിന് തിരു വനന്തപുരം തിരുവല്ലം പരശുരാമ ക്ഷേത്ര തീർത്ഥത്തിൽ ചിതാഭസ്മം നിമജ്ജനം ചെയ്യും കാസർകോട്ട് അഞ്ചംഗ നായാട്ട് സംഘം വനംവകുപ്പിന്റെ പിടി യിലായി കാറടുക്ക സംരക്ഷിത വനമേഖലയിലെ പയർപള്ളത്തു നിന്നാണ് കരിവേടകം സ്വദേശികൾ വാഹനം സഹിതം ഫ്ളൈയിഗ് സ്കാഡിന്റെ പിടിയിലായത് ഇവരിൽ നിന്നും ലൈസൻസില്ലാത്ത അഞ്ച് തോക്കുകൾ ഉൾപ്പെടെ ഏഴ് നാടൻ തോക്കുകളും തിരകളും വെടിമരുന്നും കണ്ടെടുത്തു നായാട്ടു സംഘം വനംവകുപ്പിന്റെ വാഹനം ഇടിച്ചുമറിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഉദ്യോഗസ്ഥർ പിടി കൂടുകയായിരുന്നു